താങ്ങുവിലയ്ക്ക് സംഭരിച്ചു തുടങ്ങിയതായി കേന്ദ്ര സർക്കാർ

സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തുവിട്ടു

ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും

പഞ്ചാബ് ഹരിയാന തമിഴ്നാട് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും എഫ്സിഐ മുഖേനയും മറ്റു സർക്കാർ ഏജൻസികൾ വഴിയുമുള്ള നെല്ല് ശേഖരണം ദ്രുതഗതിയിലായെന്ന് മന്ത്രാലയം അറിയിച്ചു

കർഷകരുമായും വിദഗ്ദ്ധരുമായി വിശദമായ ചർച്ച നടത്തിയിരുന്നതായും അവർ ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്ത് എവിടെയും സ്വന്തം താൽപ്പര്യമനുസരിച്ച് വിളകൾ വിറ്റഴിക്കാൻ കർഷകർക്ക് അവസരമൊരുങ്ങുകയാണ്

മിനിമം താങ്ങുവില സമ്പ്രദായം തുടരുമെന്നും മന്ത്രി പറഞ്ഞു

മതപരമായ ആരാധന മേളകൾ സാംസ് കാരിക പരിപാടികൾ എന്നിവയ്ക്കായി ധാരാളം പേർ ഒത്തുകൂടുന്ന കാലയളവാണ് ഡിസംബർ ഒടുവിൽ വരെ അണുബാധ പടരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ പാലിക്കേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രാലയം അറിയിച്ചു

ശാരീരിക അകലം പാലിക്കൽ ശരീര ഊഷ്മാവ് പരിശോധന ശൂചിത്വം എന്നിവയ്ക്കായി വിശദമായ പദ്ധതി തയ്യാറാക്കാനും മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു

ജാഗ്രതയും സ്വീകരിച്ച നടപടികളും വെറുതെയായില്ല എന്ന് ഇതിൽനിന്ന് മനസ്സിലാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ആകെ രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

നിർണായക പങ്ക് ദ്രുതകർമ്മസേനയുടെ മനുഷ്യത്പർമായ പ്രവർത്തനങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേന നടത്തിയ സമാധാന സംരക്ഷണ ദൌതൃവും ഇന്തൃയ്ക്ക് അഭിമാനകരമാണെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു

ജപ്പാനിൽ നടന്ന കാഡ് അംഗരാഷ്ട്രങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര നിയമങ്ങൾ പരിപാലിക്കുന്നതും സമുദ്ര മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പു വരുത്തുന്നതും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നതുമാണ് മേഖലയിലെ സമാധാനം നിലനിർത്താനുള്ള മാർഗമെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

ജെഡിയു ആർജെഡി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല

കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം അതേസമയം ഹാഥ്റസ് സംഭവത്തിൽ ഏതു തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഇന്നലെ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു

ബി ഐ അന്വേഷണത്തിനും തയ്യാറാണെന്നും എന്നാൽ അത് ക്കോട്ടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നും അറിയിച്ചിട്ടുണ്ട്

കേസിലെ മറ്റൊരു പ്രതിയായ അബ്ദുൽ പരിഹാറിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളി

എല്ലിൽ കൊൽക്കത്ത നൈറ്റ്റൈഡേഴ്സ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും

ഇറ്റാലിയൻ താര്യം ജന്നിക് സിന്നറിനെ തോൽപ്പിച്ചാണ് നദാൽ സെമിയിലെത്തിയത്

കാർട്ടറിൽ നൊവാക് ജോക്കോവിച്ച് ഇന്ന് കരെനൊ ബസ്റ്റയെ നേരിടും

പിഎം സ്വനിധി പദ്ധതിയിലൂടെ വായ്പ എടുക്കുന്ന വഴിയോരക്കച്ചവടക്കാർക്ക് ഇത് വളരെയേറെ ഉപകാരപ്രദമാവും

സ്വയം സഹായ സംഘങ്ങൾ വഴി കാർഷിക ഉത്പാദക സംഘടനകൾക്ക് വായ്പില്ഭ്യമാക്കുകയാണ് ലക്ഷ്യം

ഭീകരനെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു